പുരസ്ക്കാരത്തിന് കൊച്ചി അന്താര്ാഷ്ട്ര വിമാനത്താവളം അർഹമായി

തുടരണമെന്ന്പന്തളം രാജകുടുംബം സുപ്രീംകോടതിയിൽ

ന്യായവില പച്ചക്കറി വിപണികൾ തുടങ്ങും

പിണറായി വിജയൻ നെടുമ്പാശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്യും

വെള്ളപ്പൊക്ക ബാധിതമായി വിജ്ഞാപനം ചെയ്യപ്പെടുന്ന ജില്ലകളിലെ കർഷകർക്ക് വിള ഇൻഷൂറൻസ് ലഭിക്കാൻ് അർഹതയുണ്ട്

ഈ ജില്ലകളെ കേന്ദ്ര ഗവൺമെന്റും പ്രളയബാധിത പ്രദേശമായി പ്രഖ്യാപിക്കും സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുകയാണെങ്കിലും ചില ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലും ലക്ഷദ്ധീപിലും ഇന്നും മഴ പെയ്തു ഇതിനിടെ കനത്ത മഴയെത്തുടർന്നുണ്ടായ പ്രളയത്തിൽ ഇടുക്കിയിലെ മുണ്ടക്കയത്തു നിന്നും കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി

ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ശബരിഗിരി ജല്വെദ്യുത പദ്ധതിയുടെ മൂഴിയാർ ഡാമിന്റെ ഷട്ടറുകളും തുറന്നു അത്സ്മയം വെള്ളക്കെട്ട് തുടരുന്ന കുട്ടനാട്ടി ൽ വിഷപ്പാമ്പുകളുടെ ശലൃം നാട്ടുകാർക്ക് ഭീഷണിയായി മാറുന്നുണ്ട്

തണ്ണീർമുക്കം ബണ്ടിന്റെ നിർമ്മാണം പൂർത്തിയാ യിട്ടില്ലെന്നും മണ്ണ് നീക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതികമായ പ്രവർത്തികൾ ഇനിയും പൂർത്തിയാകാനുണ്ടെന്നും മന്ത്രി ജി

ബണ്ടിന്റെ ഉദ്ഘാടനം വൈകുന്നത് മുഖ്യമന്ത്രി സമയം അനുവദിക്കാ ത്തതുകൊണ്ടാണെന്ന വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രി പറഞ്ഞു

ഇന്ത്യയിൽ ഇതാദ്യമായാണ് ഈ വിഭാഗത്തിൽ ഒരു സ്ഥാപനം ഐക്യരാഷ്ട്രസഭയുടെ പരമോന്നത പരിസ്ഥിതി പുരസ്ക്കാരം നേടുന്നത്

സിയാലിന്റെ പരിസ്ഥിതി സംരംഭങ്ങളെക്കുറിച്ച് മ നസ്റ്റിലാക്കാൻ യു എൻ ആഗോള പരിസ്ഥിതി മേധാവിയും യു എൻ

ന്യൂസ് ഡെസ്ക് ആകാശവാണി ട്ടടടടടടടട ലോറി സമരം അഖിലേന്തൃ ലോറി സമരവുമായി ബന്ധപ്പെട്ട് ആവശൃമായ ഇടപെടൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ഗതാഗതവകുപ്പുമന്ത്രി എ കെ ശശീന്ദ്രൻ കേന്ദ്രമന്തി അൽഫോൺസ് കണ്ണന്താനത്തിനും ് കേരളത്തിൽ നിന്നുള്ള എല്ലാ എം

മാർക്കും മറ്റ് മലയാളികളായ എം

വിലക്കയറ്റും എട്ടാം ദിവസത്തിലേക്ക് കടന്ന സാഹചരൃത്തിൽ സംസ്ഥാനത്ത് വിലക്കയറ്റവും അവശൃസാധനങ്ങളുടെ ക്ഷാമവും നേരിടുകയാണെന്നും സമരം അടിയന്തരമായി ഒത്തുതീർപ്പാക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു

സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന കോടതിയിൽ നിൽകിയ ഹർജിക്കു പിന്നിൽ ശബരിമല ക്ഷേത്രത്തിന്റെ യശസ് ത്രകർക്കാനുള്ള ശ്രമമാണെന്നും രാജകൂടുംബത്തിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു

ആലപ്പുഴയിൽ സമിതി നടത്തിയ മൊഴിയെടുപ്പിലാണ് ഇതു സംബന്ധിച്ച് നിരീക്ഷണം നടത്തിയത്

കൃഷിവകൂപ്പ് ഹോർട്ടികോർപ്പ് വി

വിപണിയെക്കുറിച്ച് കൃഷിവകുപ്പ് അഡീഷണൽ ഡയറക്ടർ എ എം സുനിൽ കുമാർ ആകാശവാണിയോട്

ഹജ്ജാജിമാരുടെ ബാഗേജ് ക്ലിയറൻസ് പാസ്പോർട്ട് ക്ലിയറൻസ് എന്നിവയ്ക്കായി സംസ്ഥാന ക്രവൺമെന്റും ഹജ്ജ് കമ്മിറ്റിയും വിശാലമായ ഹജ്ജ് സെൽ ശനിയാഴ്ച മുതൽ ആരംഭിക്കും

ഏറ്റെടുക്കേണ്ടിവരുന്ന സ്ഥലത്തിന്റെ വിസ്തീർണ്ണം കണക്കാക്കുന്നതിനുള്ള സർവ്വേയും ഇതോടൊപ്പം നടക്കുന്നുണ്ട്

മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഫോറൻസിക് വിഭാഗം മേധാവി എന്നി വർക്കാണ് കമ്മീഷൻ അദ്ധ്യക്ഷൻ ജസ്റ്റിസ് ആൻൻണി ഡൊമിനിക് നിർദേശം നൽകിയത് ട്ടെട് എൽ ഡി എഫ് ഇടതുമുന്നണിക്കകത്ത് സമവായം ഉണ്ടായശേഷം മുന്നണി വിപുലീകരണം സംബന്ധിച്ച തീരുമാനമെടുക്കുമെന്ന് കൺവീനർ എ

ഇന്ന് ചേർന്ന എൽ ഡി എഫ് യോഗത്തിന്റെ തീരുമാനങ്ങൾ വാർത്താസമ്മേളനത്തിൽ വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം എൽഡിഎഫുമായി സഹകരിക്കുന്ന എല്ലാ കക്ഷികളെയും ഒപ്പം നിർത്തണമെന്നാണ് മുന്നണിയുടെ പൊതുവായ തീരുമാനമെന്നും ശ്രീ വിജയരാഘവൻ പറഞ്ഞു

ശംഖുമുഖത്ത് ബലിത്ർപ്പണത്തിന് പതിവായി എത്തുന്നവർ വർക്കല പാപനാശം തിരുവല്ലം എന്നിവിടങ്ങളിലും മറ്റു പ്രാദേശിക സ്നാന ഘട്ടങ്ങളിലും ബലിതർപ്പണം നടത്താൻ ഇത്തവണ ്താത്പര്യമെടുക്കണമെന്നും ജില്ലാ കളക്ടർ ഡോ

വാസുകി അഭ്യർഥിച്ചു